നല്ല ഭരണത്തിനുള്ള പ്രേരകശക്തിയാവണം കംപ്ട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സംസ്ഥാനത്ത് ഒറ്റതവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ജനുവരി ഒന്നു മുതൽ നിരോധനം ഏർപ്പെടുത്താൻ മന്ത്രിസഭാ തീരുമാനം

സ്ഥിതിവിവര കണക്കുകളും നട്പടിക്രമങ്ങളും മാത്രമായി സി എ ജി പരിമിതപ്പെടരുതെന്നും ശ്രീ ന്രേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ അക്കൌണ്ടന്റ് ജനറൽമാർുടെയും ഡെപ്യൂട്ടി അക്കൌണ്ടന്റ് ജനറൽമാരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ഏജൻസികളുടെ പ്രതിച്ഛായയായി സി എ ജി വർത്തിക്കുകയും അവരുടെ പരിമിതികൾ തുറന്നുകാട്ടുകയും വേണം ഇന്ത്യ അതിവേഗം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുകയാണെന്നും സി എ ജി ക്കും എ ജി മാർക്കും ഇതിൽ പ്രമുഖ പങ്കാണ് വഹിക്കാനുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മലിനീകരണം തടയാൻ ജനപങ്കാളിത്തം ആവശ്യമാണെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു രാജൃത്ത് പരിസ്ഥിതി അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടിയിലെ ജയാബച്ചൻ ആവശ്യപ്പെട്ടു

ഡൽഹിയിലെയും രാജ്യത്തിന്റെ ഇതരഭാഗങ്ങളിലെയും വായുമലിനീകരണത്തിന്റെ തോത് അപകടകരമാംവിധം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിയത് വായുമലിനീകരണത്തിന് വിവിധ നഗരങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാണ് ഉളളത്

ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് സി എൻ

വായുമലിനീകരണത്തിന് എതിരായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം ചേരണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷനേതാവ് ഗുലാംനബി ആസാദ് ആവശ്യപ്പെട്ടു

കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാരൃം വൃക്തമാക്കിയത്

കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധനാണ് ബിൽ കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം കൊണ്ടുവന്നത്

ചന്ദ്രനിലേക്കുള്ള യാത്രയും തുടർന്ന് ഓർബറ്റിന്റെ മാറ്റങ്ങളും ലാൻഡറിന്റെ പ്രവർത്തനങ്ങളും വിജയകരമായി പരീക്ഷിക്കാനും നടപ്പാക്കാനും കഴിഞ്ഞു

യു എസ്സിന് പോലും അവരുടെ എട്ടാമത്തെ പരിശ്രമത്തിലാണ് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങാൻ സാധിച്ചത് ആ നിലയ്ക്ക് ഇന്ത്യയുടെ പരീക്ഷണം വൻവിജയമാണെന്നും രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു

അടുത്തിടെ ്യൂണിയൻ പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ശുപാർശയനുസൂരിച്ച് എട്ടുപേരെ ലാറ്ററൽ എൻട്രി വൃവസ്ഥയിൽ ജോയിന്റ് ക്രെക്ടറിമാരായി നിയമിച്ചതായും മന്ത്രി പറഞ്ഞു

ഭേദഗതി നിയമം നടപ്പിലാക്കിയ ശേഷം റോഡ് അപകടങ്ങളും മരണകാരണമായ വിപത്തുകളും കുറഞ്ഞിട്ടുണ്ട്

പരമ്പരാഗത ജലാശയങ്ങൾ സർവ്വേ നടത്തി രേഖപ്പെടുത്തുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും ഭരണാനുമതി നൽകിയതായി അധികൃതർ അറിയിച്ചു പഞ്ചായത്ത് തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ജമ്മുവിൽ ആദ്യമായാണ് ആവിഷ്ക്കരിച്ചിരിക്കുന്നത്

നദിയിലെ ജല്ത്തിന്റെ ഗുണനിലവാരം വളരെയധികം മെച്ചപ്പെട്ടതായി മന്ത്രി പറഞ്ഞു

ഗംഗാനദിയിലെ മലീനീകരണം കുറയ്ക്കുന്നതും പോഷകനദികളെ സംരക്ഷിക്കുന്നതും പദ്ധതി ലക്ഷ്യമിടുന്നു

തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് റെനിൽ വിക്രമ സിംഗെ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രി സ്ഥാനമേറ്റത്

പുതിയ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു

ഭൂവിനിയോഗം ജല പരിപാലനം വന പരിപ്പിൽനം പ്രാദേശിക സമൂഹവും അതിജീവനവും ഗതാഗതം വാർത്താ വിനിമയം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളെ ആസ്പ്രദ്മാക്കിയാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ജില്ലാ തലത്തിൽ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുടെ സേന രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു

മുൻ ജഡ്ജി പി

പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ച പ്രതികൾ കുറ്റവിമുക്തരാകാനിടയായ സാഹചരൃം എന്നിവ കമ്മീഷൻ അന്വേഷിക്കും

കേസിലെ പ്രതികൾക്ക് നോട്ടീസ് അയയ്ക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി

ഗുജറാത്ത് ഹൈക്കോടതി വെറുതെ വിട്ട പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിന്റെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് പിധിയുണ്ടായത്

മെഡൽ പട്ടികയിൽ മൂന്ന് സ്വർണ്ണവുമായി നിലവിൽ ഇന്ത്യ ഒന്നാമതാണ് രണ്ട് സ്വർണ്ണവും ഒരു വെള്ളിയും ഒരു വെങ്കലവുമായി ചൈനയാണ് രണ്ടാമത്

ഇന്ത്യയിലെ ആദ്യ ഡേ നൈറ്റ് ടെസ്റ്റ് മാച്ചാണ് ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറുന്നത്